നരേന്ദ്രമോദി ബ്രൂവറികൾക്കും കോമ്പൌണ്ടിംഗ് ബ്ലെൻഡിംഗ് ആന്റ് ബോട്ട്ലിംഗ്

വൽക്കരിക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ സി ടി ഇ മാനദണ്ഡമനുസരിച്ച് കോളേജുകളിൽ അടുത്ത അധ്യയന വർഷം സിലബസ് പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

ജലീൽ യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ടു സ്വർണ്ണം

കർഷകരുടെ ക്ഷേമത്തിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കർഷകർക്ക് ലോകോത്തര വിപണി സൃഷ്ടിക്കാൻ ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു ഹരിയാനയിലെ റോത്തഗിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കർഷകർക്കും വ്യാപാരികൾക്കും വേണ്ടി ബാങ്കുകളുടെ വാതിലുകൾ തുറന്നിട്ട സാഹചര്യത്തിൽ പണം പലിശക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ട സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ബ്രൂവറികൾക്കും കോമ്പൌണ്ടിംഗ് ബ്ലെൻഡിംഗ് ആന്റ് ബോട്ട്ലിംഗ് യൂണിറ്റുകൾക്കും അനുമതി നൽകുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ ഗവൺമെന്റ് നാലംഗ സമിതി രൂപീകരിച്ചു

എക്സൈസ് കമ്മീഷണർ ജോയന്റ് കമ്മീഷണർ നികുതി വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ് നിലവിലെ നിയമങ്ങൾ ക്കും ചട്ടങ്ങൾക്കും വിധേയമായി ബ്രൂവറികൾക്കും ബ്ലെൻഡിംഗ് യൂണിറ്റുകൾക്കും ലൈസൻസ് നൽകുന്നതിന് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് സമിതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി ലഭിച്ച അപേക്ഷകളും സമിതി പരിശോധിക്കും

് ് ് ് ് ് ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് കോടതി വിധിയിൽ പ്രതിഷേധിച്ച് എൻഡിഎയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ യാത്രക്ക് ഇന്ന് തുടക്കമാകും രാവിലെ പന്തളത്ത് നിന്ന് ആരംഭിക്കുന്ന് യാത്രക്ക് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിള്ള തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകും സെക്രട്ടേറിയറ്റ് മാർച്ചോടെ യാത്ര സമാപിക്കും

ശബരിമല വിഷയത്തിൽ സിപിഐഎം വിദ്വേഷത്തിന്റെ വിളവെടുപ്പ് നടത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിള്ള ആലപ്പുഴയിൽ പറഞ്ഞു

ശബരിമല കേസിലെ വിധി നടപ്പാക്കാൻ തിടുക്കം കാട്ടുന്ന ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാ ണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തെ ബി ജെ പിയും സംഘ്പരിവാറും സാമുദായികവൽക്കരിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി ബി ജെ പിക്ക് ആത്മാർത്ഥതയുണ്ടെ ങ്കിൽ വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിധിയെ തുടർന്നു ണ്ടായ സ്ഥിതി എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിലയിരുത്തുന്നില്ലെ ന്ന് മുല്ലപ്പള്ളി ചോദിച്ചു ഗവൺമെന്റ് നിലപാട് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടെന്നും വിശ്വാസി കളുടെ അമർഷം കണ്ടില്ലെന്നു നടിക്കാൻ കോൺഗ്രസിന് ആവില്ലെന്നും മുല്ലപ്പള്ളി അറിയിച്ചു ബൂത്ത് തലത്തിൽ കോൺഗ്രസിനെ പുനഃസംഘടിപ്പി ക്കാൻ യോഗം തീരുമാനിച്ചതായി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു

സമരത്തിനായി കൊണ്ടുവന്ന സ്ത്രീകൾ തന്നെ തങ്ങളാരും ശബരിമലയിൽ പോകാൻ തയ്യാറല്ലെന്ന് യോഗസ്ഥലത്ത് വെച്ച് വ്യക്തമാക്കിയതിലൂടെസി പി ഐ എം സ്ഥയം വിഡ്സിവേഷം കെട്ടുകയായിരു ന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കോളേജുക ളിൽ അടുത്ത അധ്യയനവർഷം സിലബസ് പരിഷ്കരണം നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ കെ

പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും അടിമുടി പരിഷ്കരണം വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്വാശ്രയ് എഞ്ചിനിയറിംഗ് ആർകിടെക്ചർ എം

എ അകോളേജുകളിലെ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

മാർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഗോ എയർ എന്നിവ സർവീസ് നടത്തും കിയാൽ മാനേജിങ് ഡയറക്ടർ വി തുളസീദാസ് വിമാനക്കമ്പനി പ്രതിനിധികളുമായി കണ്ണൂരിൽ നടത്തിയ കൂടിക്കാഴ്ച യിലാണ് തീരുമാനമായത്

ആധുനിക ഓട്ടോമാറ്റിക് ബാഗേജ് സംവിധാനം രാജ്യത്ത് ആദ്യമായി കണ്ണൂർ വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തുമെന്ന് മാനേജിങ് ഡയറക്ടർ അറിയിച്ചു ് ് ് ് ് ് ് ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നുമുതൽ നിയന്ത്രണങ്ങ ളോടെ സന്ദർശകരെ പ്രവേശിപ്പിക്കും

യുവജനങ്ങളും മാറുന്ന ലോകത്തെ മാനസികാരോഗ്യവും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ പരിപാടികളും പ്രമേയാവതരണവും നടക്കും രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ് ് ് ് ് ് ് ലോക മാനസികാരോഗൃ ദിനാചരണത്തിന്റെ ഭാഗമായി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഇന്ന് ചലച്ചിത്രമേളയും സെമിനാറും സംഘടിപ്പിക്കും

് ് അർജന്റീനയിലെ ബ്യൂനസ് ഐറിസിൽ നടക്കുന്ന യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്നലെ രണ്ട് സ്വർണ്ണം ലഭിച്ചു

യൂത്ത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഇന്ത്യ ആദ്യമായാണ് സ്വർണ്ണം നേടുന്നത്

രണ്ടു സ്വർണ്ണവും മൂന്ന് വെള്ളിയുമായി ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ് ് ് ് ് ് ് ജക്കാർത്ത ഏഷ്യൻ പാര ഗെയിംസിൽ ഇന്ത്യ മൂന്ന് സ്വർണ്ണം കൂടി സ്വന്തമാക്കി

ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം ദിനമായ ഇന്നലെ മൂന്ന് വെള്ളിയും ആറ് വെങ്കലവും ഇന്ത്യ നേടി

പത്തിന് നടത്തുമെന്ന് മന്ത്രി ഡോ

ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ മുഖ്യാതിഥിയാകും സംസ്ഥാനത്തെ വിനോദ സഞ്ചാരമേഖലയെ സംരക്ഷിക്കാൻ ആർഭാടങ്ങൾ ഒഴിവാക്കി ജലമേള നടത്തുമെന്ന് മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു ് ് ് ് ് ് ് ് കാലിക്കറ്റ് സർവകലാശാലാ കാമ്പസിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിംലീഗ് ഇന്ന് സമരം തുടങ്ങും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ എം പിമാർ എം

എമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് പ്രകടനവും ഭരണകാര്യാലയത്തിന് മുന്നിൽ ധർണയും നടത്താനാണ് തീരുമാനം

സംഗീത കച്ചേരികൾ ഉൾപ്പെടെ ഒമ്പതു ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് നടക്കുക ് ് ് ് ് ് ് ് കരിപ്പൂരിൽ നിന്നും വലിയ വിമാനങ്ങളുടെ സർവീസ് പുനഃരാരംഭിക്കുന്നതിലെ കാലതാമസം വ്യോമയാന മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി വിമാനത്താവള ഉപദേശകസമിതി അധ്യക്ഷൻ പി

കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു ഡൽഹിയിൽ വ്യോമയാന സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രാലയം അനുമതി നൽകിയിട്ടും വിമാന സർവ്വീസ് പുനഃരാരംഭിക്കാത്തിൽ ഗൌരവമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പ്പെടുത്തിയതായി കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു

സുനിൽകുമാർ പറഞ്ഞു പത്തനംതിട്ടയിൽ ജില്ലാതല കാർഷിക വികസന സമിതി യോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം

പുനരധിവാസം ഉറപ്പാക്കുന്നതിന് നടപടി ത്വരിതപ്പെടുത്തണമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു ഇടുക്കി ജില്ലയിൽ പ്രകൃതിദുരന്തങ്ങൾക്കു ശേഷം നടത്തിയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി

പൊലീസ് അന്വേഷണം തുടങ്ങി നിലമ്പൂർ തമിഴ്നാട് മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടുകാണി ദളത്തിന്റെ പ്രസിദ്ധീകര ണമായ കനൽപ്പാത യുടെ മൂന്നാമത്തെ പതിപ്പിൽ മഴ പ്രകൃതിയുടെ സൃഷ്ടിയാണെങ്കിലും മഹാപ്രളയദുരന്തം ഭരണകൂടത്തിന്റെ സൃഷ്ടിയാണെന്ന് കുറ്റപ്പെടുത്തുന്നു

ക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു

എഫ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ഇന്ന് പ്രതിഷേധ ധർണ്ണ നടത്തും

ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ ഉച്ച കഴിഞ്ഞ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് കൺസ്ട്രക്ഷനിലെ ആദ്യബാച്ച് വിദ്യാർഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഓറിയന്റേഷൻ പരിപാടി സ്കിലെക്സ് ഇന്ന് നടക്കും ഉച്ചകഴിഞ്ഞ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് ഉദ്ഘാടനം ചെയ്യും

സെക്രട്ടറി ആർ റോഷനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് റോഷനും സുഹൃത്ത് ശ്രീനാഥിനും നേരെ ആക്രമണമുണ്ടായത്

തഴുത്തല സ്വദേശി വിച്ചുവിന്റെ മൃതദേഹമാണ് കിട്ടിയത്